ൾ ൽ ൾ രാജ്യത്തിന്റെ സുരക്ഷ ശക്തിപ്പെടുത്താൻ മാത്രമാണ് ഇന്ത്യ ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും വാങ്ങുന്നതെന്നും ഒരു രാജ്യ ത്തേയും ഭീഷണിപ്പെടുത്താനല്ല ഇതെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ്ങ് വൃക്തമാക്കി സ്വന്തം സുരക്ഷ മാത്രമാണ് ഇക്കാരൃത്തിൽ രാജ്യ ത്തിന്റെ പരിഗണനയെന്നും അദ്ദേഹം ഫ്രാൻസിലെ മെറിനാക്കിൽ പറഞ്ഞു ഇന്ത്യക്ക് ലഭിക്കുന്ന ഫ്രഞ്ച് നിർമ്മിത റഫേൽ വിമാനങ്ങ ളിൽ ആദ്യത്തേത് ഫ്രാൻസിലെ മെറിനാക്കിൽ ഏറ്റുവാങ്ങുകയായി രുന്നു അദ്ദേഹം റഫേൽ യുദ്ധ വിമാനങ്ങൾ ആകാശത്ത് ഇന്ത്യയുടെ ആധിപത്യം അതീവ ശക്തമാക്കുമെന്ന് രാജ്നാഥ് സൃങ്ങ് അഭിപ്രായ പ്പെട്ടു റഫേൽ വിമാനത്തിൽ അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്തു

അടുത്ത മെയ് മാസ ത്തോടെ നാല് റഫേൽ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനക്ക് ലഭി ക്കും

നിക്ഷിപ്ത താൽപര്യക്കാർ നടത്തുന്ന പ്രചാരണം മാത്രമാണിതെന്നും ബിജെപിക്കോ ഗവൺമെന്റിനോ ഇതു മായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി ഒരു അഭിഭാഷകൻ ബിഹാറിലെ മുസാഫർപൂർ കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതിയാണ് തുടർനടപ ടിക്ക് നിർദേശം നൽകിയത് ഇതിന്റെ പേരിൽ കേന്ദ്രത്തിനും നരേന്ദ്ര മോദിക്കുമെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുക യാണെന്നും ജാവ്ദേക്കർ പിടിഐ വാർത്താ ഏജൻസിയോട് പറ ഞ്ഞു

പ്രസ്താവന നിർഭാഗൃകരമാണെന്ന് കോൺഗ്രസ് വക്താവ് ആനന്ദ്ശർമ്മ പറഞ്ഞു ഏതെങ്കിലും മേഖല യുടേയോ മതത്തിന്റേയോ ഭാഷയുടേയോ ഭാഗമല്ല ആൾക്കൂട്ട കൊല പാതകമെന്നും മനുഷ്യ സമൂഹത്തിന് അംഗീകരിക്കാനാവാത്ത ഒന്നാണ് അതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു

മനുഷ്യനും വന്യജീവികളും തമ്മിൽ സംഘർഷം ഒഴിവാക്കാൻ മികച്ച ബോധവത്കരണം ആവശൃമാണെന്നും അത് സ് കൂളുകളിൽനിന്ന് ആരംഭിക്കണമെന്നും ഗവ്ർണർ ആരിഫ് മൊഹമ്മദ് ഖാൻ നിർദേശിച്ചു പ്രകൃതിവിഭവങ്ങളുടെ മൂല്യവും അവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തേണ്ടത് വനസംരക്ഷണത്തിൽ ഏറെ പ്രധാനമാണെന്നും ഗവർണർ പറഞ്ഞു

വനംവകുപ്പ് ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി കെ

വനൃജീവിസംരക്ഷണ ത്തോടൊപ്പം മനുഷ്യനും സമാധാനപൂർണമായ ജീവിതം ഉറപ്പുവരുത്താൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു വന്യജീവി ഫോട്ടോഗ്രഫി പോസ്റ്റർ മത്സരങ്ങളിലെ വിജയികൾക്ക് ഗവർണർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു വനംവകുപ്പിന്റെ അരണ്യം വിശേഷാൽ പതിപ്പും ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകാശനം ചെയ്തു ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ സ്വകാര്യവൽക്കരണ നീക്കം കേന്ദ്രഗവൺമെന്റ് ഉപേക്ഷിക്കണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു രാജ്യത്തിന് മാതൃകയായ നവരത്ന പൊതുമേഖലാ സ്ഥാപനത്തെയാണ് കേന്ദ്രം സ്ഥകാര്യവത്കരിക്കാൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി

ഡ്രൈവർമാരുടെ കുറവിനെ തുടർന്ന് കെഎസ്ആർടിസിയിലെ പ്രതിസന്ധി തുടരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസിന്റെ പരിഗണന നേരത്തെയാക്കണമെന്നാവശൃപ്പെട്ട് കോർപ്പ റേഷൻ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചേക്കും

കെഎസ്ആർടിസിയിലെ ശമ്പള വിതരണവും തടസ പ്പെട്ടിരിക്കുകയാണ് ടിക്കറ്റ് വരുമാനം കുറഞ്ഞതിനാൽ എല്ലാ ജീവ നക്കാർക്കും ശമ്പളം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല

സുപ്രീംകോടതി നിർദേശത്തെ തുടർന്ന് അനധികൃത ഫ്ളാറ്റുക ളിൽ നിന്ന് ഒഴിഞ്ഞവരിൽ നഷ്ടപരിഹാർത്തിന് അർഹരായവരുടെ പട്ടിക മരട് നഗരസഭ ഇന്ന് ഗവൺമെന്റിന് സമർപ്പിച്ചേക്കും പട്ടി കയ്ക്ക് അവസാന രൂപം നൽകുന്നതിന് ഇന്ന് അടിയന്തര കൌൺസിൽ ചേരും ഫ്ളാറ്റുകൾ പൊളിക്കുന്നത് സംബന്ധിച്ചും കൌൺസിൽ ചർച്ച ചെയ്യും കോഴിക്കോട് കൂടത്തായി കൊലപാതക പരമ്പരയിൽ റിമാൻഡിൽ കഴിയുന്ന ജോളി നേരത്തെ അവരുടെ ബന്ധുക്കളായ രണ്ട് കൂട്ടികളെ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് വടകര റൂറൽ എസ്പി കെ

റോയ് തോമസിന്റെ മരണത്തോട് ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാ നത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്

പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണം അഴിമതിക്കേസിൽ റിമാന്റിൽ കഴിയുന്ന പൊതുമരാമത്ത് മുൻ സെക്രട്ടറി ടി

വിജി ലൻസ് അന്വേഷിക്കുന്ന കേസിൽ ഹൈക്കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത് റഷ്യയിലെ ലോക വനിതാ ബോക്സിങ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മേരികോം കാർട്ടറിൽ കടന്നു ആദ്യ മത്സരത്തിൽ തായ് ലന്റ് താരത്തെ അനായാസം കീഴടക്കിയാണ് മേരികോമിന്റെ വിജ യം

നാളെ കാർട്ടറിൽ കൊളംബിയയുടെ വലൻസിയ വിക്ടോറിയ ആണ് മേരി കോമിന്റെ എതിരാളി

ബെങ്കളൂരുവിൽ വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റിൽ കേരളം ചത്തീസ്ഗഢിനെ പരാജയപ്പെടുത്തി

വനിതകളുടെ ഇന്തൃ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പ രയ്ക്ക് ഇന്ന് തുടക്കമാകും ബറോഡയിലാണ് ആദ്യ മത്സരം ബാഡ്മിൻ്റൺ ലോകചാമ്പ്യൻ പി വി സിന്ധുവിന് സംസ്ഥാന കായികവകുപ്പും കേരളാ ഒളിമ്പിക് അസോസിയേഷനും സംയുക്തമായി തിരുവനന്തപുരത്ത് ഇന്ന് സ്വീകരണം നൽകും ഉച്ചക്ക് രണ്ട് മണിയോടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ജിമ്മിജോർജ്ജ് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് സിന്ധു വിനെ ഘോഷയാത്രയായി ആനയിക്കും തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി

കേരളാഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാന മന്ദിരം ഒളി മ്പിക് ഭവനും സിന്ധു സന്ദർശിക്കും പാലായിൽ സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിനിടെ ഹാമർ തലയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ അഫീൽ ജോൺസണെ കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ഏഴു മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ഏഴു ഡോക്ടർമാർ അടങ്ങിയ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത് തലയോട്ടി പൊട്ടി തലച്ചോറിന് ക്ഷതമേറ്റ അഫീലിന്റെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു

മൂന്നാർ ദേവികുളം ഗൃാപ്പ്റോഡിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണ സ്ഥലത്ത് രണ്ടു തൊഴിലാളികൾ മണ്ണിനടിയിൽ പെട്ടതായി സംശയിക്കുന്നു

ഇതിലൊരു വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടതായി സംശയിക്കുന്നത് ശക്തമായ മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ തടസ്പ്പെട്ടിരിക്കു കയാണ് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ശരി ദൂര നിലപാട് കണ്ടെത്തണമെന്ന് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ചങ്ങനാശ്ശേരിയിൽ പറഞ്ഞു സംഘടനക്ക് രാഷ്ട്രീയമില്ലെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റിന്റെ അവഗ ണനയ്ക്കും വിവേചനത്തിനുമെതിരെ പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശബരിമല വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും ഇടത് മുന്നണിയും വിശ്വാസികൾക്കെതിരായ നിലപാടാണ് സ്വീകരി ച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സ്വന്തം മക്കളെക്കാൾ പ്രാധാനൃം വിദ്യാർത്ഥിക്ക് നൽകുമ്പോഴാണ് ഒരാൾ മികച്ച അധ്യാപകനാകുന്നതെന്ന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോ

കോഴിക്കോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാളിറ്റി സംഘടിപ്പിച്ച സംസ്ഥാന അധ്യാപക വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വൈസ് ചാൻസലർ കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനം ഇനിയും വൈകിപ്പിച്ചാൽ അനിശ്ചിതകാല ഉപവാസസമരം തുടങ്ങുമെന്ന് ആക്ഷൻ കമ്മിറ്റി യോഗം അറിയിച്ചു

കേരള ത്തിനനുകൂലമായ സത്യവാങ്മൂലം അന്ന് കോടതിയിൽ സമർപ്പിക്ക ണമെന്ന് കേന്ദ്രത്തിന് മുകളിൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് സമരസ മിതിയുടെ നീക്കം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബ ലിനെ കേരളത്തിനായി വാദിക്കാൻ വയനാട് എംപി രാഹുൽ ഗാന്ധി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്

കളിക്കുന്നതിനിടെ കണ്ണിന് പരുക്കേറ്റ് കോഴിക്കോട്ടെ കോംട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൂന്ന് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കസബ പോലീസ് കേസെടുത്തു ചേളാരി സ്വദേശി രാജേഷിന്റെ മകൻ അനയ് ആണ് മരിച്ചത്